പരിഷ്കാരങ്ങൾ അവർക്ക് പുതിയ വിപണി അവസരങ്ങൾ നൽകുമെന്നും അദ്ദേഹം രാജ്യത്തെ കർഷകർക്ക് ഉറപ്പ് നൽകി ഉത്തർപ്രദേശിലെ തന്റെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക വിപണികളെ ശക്തി പ്പെടുത്തുന്നതിനും പുതിയനിയമം സഹായകമാകും കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്രസർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാർഷികവിപണി പരിഷ്കാരങ്ങളെക്കുറിച്ച് രാജ്യത്ത് തെറ്റായ പ്രചരണമാണ് നടക്കുന്നുത് മുൻ സർക്കാരുകൾ വഞ്ചിച്ചതിന്റെ ചരിത്രം കാരണമാണ് പരിഷ്കാരങ്ങളെക്കുറിച്ച് കർഷകർ ആശങ്കപ്പെടുന്നതെന്നുകൾൾ ന്രേന്ദ്രമോദി പറഞ്ഞു കർഷ കർക്ക് തങ്ങളുടെ കാർഷിക ഉൾപന്നങ്ങൾ വിപണിയിൽ വിൽക്കാൻ അവസരം ലഭിക്കേണ്ടതുണ്ട്

ഇടനിലക്കാരുടെ ചൂഷണം അവസാനിപ്പിക്കുക കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭ്യമാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങളാണ് കേന്ദ്രം നടപ്പാക്കി വരുന്നത് കർഷകരൂടെ ജീവിതത്തിൽ സമൂലമാറും ഉദ്ദേശിച്ചാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ എൻ

എ സർക്കാർ കാർഷിക വിപണി പരിഷ്കാര ങ്ങൾ കൊണ്ടു വന്നത് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിന് കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ കേന്ദ്രം സ്വീകരിച്ച നടപടികളുടെ ഒടുവിലത്തെ നടപടിയാണിത്

ഇക്കാലമത്രയും കൃഷിയിടങ്ങളിലെത്തി കർഷകരുടെ അധ്യാനഫലം കുറഞ്ഞ വിലക്ക് വാങ്ങി പുറം വിപണികളിൽ വലിയ വിറ്റുകാശാക്കുന്നവരെ അകറ്റിനിർത്തുകയാണ് പരിഷ്കരണത്തിന്റെ പ്രധാനലക്ഷ്യം അതുപോലെ കർഷകവിപണിക ളിലെ കുത്തകവൽക്കരണം അവസാനിപ്പിച്ചതിലൂടെ ഉൽപാദർക്ക് നേരിട്ട് തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ വിപണികളിലൂടെ ഇപ്പോൾ മാനൃമായ വിലക്ക് വിൽക്കാന്റാകുണ്ട് ഇടനിലക്കാർക്കുള്ള കമ്മീഷൻ സെസ് തറ വാടക തൂട്ങ്ങിയ്വയും ഇനി നൽകേണ്ടതില്ല വില കൂടുതൽ കിട്ടുന്നിടത്ത് ്വിള്കൾ വിൽക്കാനും കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ് പുതിയ നിയമപരിഷ്കരണം കൃഷിയി ടങ്ങൾ ഫാക്ടറി പരിസരി സംഭരണ കേന്ദ്രങ്ങൾ ശീതീകരണ കേന്ദ്ര ങ്ങൾ എന്നിവിടങ്ങളിൽ വിൽപ്പന നടത്താൻ കഴിയുമെന്നതാണ് പരിഷ്കരണത്തിന്റെ ശ്രദ്ധേയ നേട്ടം ഓൺലൈനായും വിൽപ്പന നടത്താനും സൌകര്യമൊരുക്കിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെഅന്തസത്ത മനസിലാക്കാതെയാണ് ഒരു വിഭാഗം കർഷകരുടെ പ്രതിഷേധമെന്ന് വിമർശനമുയർന്നിട്ടുണ്ടെങ്കിലും കർഷകരുടെ പ്രശ്നങ്ങളോട് തുറന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്

കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി

പഞ്ചാബിലെ കർഷ്ടകർക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അരി ഉയർന്ന ഏലിയിൽ വിൽക്കാനായി താങ്ങു വില വർധിപ്പിച്ചിട്ടുണ്ടെന്നും ആദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

അതിർത്തി കടന്നുള്ള ഭീകരതയാണ് ഇന്ന് രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് അദ്ദേഹം പറഞ്ഞു

കോവിഡിനെതിരായ ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു

വോട്ടെടുപ്പിനായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സി

ആർ എസ് ബി ജെ പി കോൺഗ്രസ് വൈ എസ് ആർ കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് മത്സരിക്കുന്നത്

ന്യൂഡൽഹിയിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ്ജാവദേക്കറും കേന്ദ്രവ്യോമയാനമന്ത്രി ഹർദീപ് സിംഗ് പുരിയും ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത്

ഗുരുനാനാക്ക് ദേവ്ജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ബ്യൂറോ ഓഫ് ഔട്ട്റീച്ച് കമ്മ്യൂണിക്കേഷൻ ആണ് ലഘുലേഖ പ്രസിദ്ധീകരിച്ചത് ഹിന്ദി പഞ്ചാബി ഇംഗ്ലീഷ് എന്നീ മൂന്നു ഭാഷകളിലാണ് ലഘുലേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്

പൂനെയിലെ ജിനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ഹെദരാബാദദിലെ ബയോളജിക്കൽ ഇ ലിമിറ്റഡ് ഡോ റെഡ്ഡിസ് ലബോറട്ടറീസ് ലിമിറ്റഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് വാക്സിൻ വികസിപ്പിക്കുന്നതിനായി ഈ കമ്പനികളിലെ ശാസ്ത്രജ്ഞർ നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു

വാക്സിനുകളെക്കുറിച്ചും അതിന്റെ ഫലപ്രാപ്തി പോലുള്ള കാര്യങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെ അറിയിക്കാൻ് കൂടുതൽ ശ്രമിക്കണമെന്നും ശ്രീ നരേന്ദ്രമോദി കമ്പനികൾക്ക് നി്ർദ്ദേശം നൽകി

മാസ്കും സാനിറ്റൈസറും ആണ് കോവിഡിനെതിരായ പോരാട്ടത്തിലെ ഏറ്റവും വലിയ ആയുധമെന്നും അദ്ദേഹം ഡൽഹി യിൽ പറഞ്ഞു ശുചിത്വവും സുരക്ഷിതമായ അകലവും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മന്ത്രി ഓർമ്മിപ്പിച്ചു

ഹോസ്റ്റലുകളും സ്കൂളുകളും തുറക്കുന്നതിന് മുമ്പ് കോവിഡ് പരിശോധന നടത്തുമെന്നും ശ്രീ ശർമ്മ പറഞ്ഞു ഏഴ് മുതലുള്ള ക്ലാസുകൾ ഇതിനകം ആരംഭിച്ചിരുന്നു

ഭോപ്പാൽ ഇൻഡോർ തുടങ്ങി പല നഗരങ്ങളിലും രോഗബ്ബുക്കൂർധിക്കുന്ന സാഹചര്യത്തി ലാണ് തീരുമാനം എൻഎസ്എസ്ട്രിന്റെയും സാമൂഹിക സംഘടനകളു ടെയും സഹായത്തോടെ ക്ടോവിഡിന് എതിരായ റോക്കോ ടോക്കോ പ്രചാരണപരിപാടിക്ക് ഭോപ്പാലിൽ ഇന്ന് തുടക്കമായി

അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ ഏഴ് മുതൽ സംസ്ഥാനത്ത് ക്ളാസ്സുകൾ ആരംഭിക്കും

ആർ പരിശോധനകളുടെ നിരക്ക് കുറയ്ക്കാൻ മുഖ്യമന്ത്രി അരവിദ്ദ് കെജ്രിവാൾ സ്ഥകാര്യ ലാബുകൾക്ക് നിർദേശം നൽകി സ്വക്ടരൃലാബുകളിൽ പരിശോധന നടത്തുന്നവർക്ക് ഇത് സഹായ്ക്രമാകുമെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു